ഗവൺമെന്റിന് ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ളതെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു

ആർ ടി

യിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി

വനിതാ മതിലിൽ ഗവൺമെന്റ് ജീവനക്കാരുടെ പങ്കാളിത്തം നിർബസ്സ്മുണ്ടോ എന്ന് ഗവൺമെന്റിനോട് ഫ്ലൈക്കോടതി

കൊല്സം ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യണമെന്ന് എൻ

ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ ഭക്ഷ്യ ഗുണ്ണ നിലവാര പരിശോധന കർശനമാക്കി വെങ്കയ്യ നായിഡു നീതിപൂർവകവും നിഷ്പക്ഷവുമായ സമീപനമാണ് ഗവൺമെന്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പുലർത്തിയിട്ടുള്ളതെന്ന് ഉപരാഷ്ട്രപതി എം

ന്യൂനപക്ഷങ്ങളോടുള്ള വേർതിരിവില്ലായ്മ നമ്മുടെ രാജ്യത്തിന്റെ അടിയുറച്ച വിശ്വാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ

ന്യൂഡൽഹിയിലെ സ്ട്രാൻഫോഡ് ഗ്രാജേറ്റ് സ്കൂൾ ഓഫ് ബിസിനസിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ വളർച്ചയിലും വികസനത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് തുല്യപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു

ന്യൂനപക്ഷ ദിനാചരണത്തിന്റെയും നവീകരിച്ച പരാതി സമർപ്പണ സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

മനുഷ്യമനസുകളിൽ വർഗീയത സൃഷ്ടിക്കുന്ന സമീപനം മാറണമെന്നും ശ്രീ ജലീൽ പറഞ്ഞു

ഇന്നലെ ഉച്ചയോടെ മീററ്റിലെ മവാനായിൽ പ്രാർത്ഥനാ യോഗം നടക്കവെയാണ് പാസ്റ്റർ കെവി അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ബജ്രംഗ്ദൾ സംഘടനയുടെ പരാതി അനുസരിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്

ആർ ടി

ഗുരുതര പ്രതിസന്ധിയിലാണെന്നും ഇത് പെട്ടെന്ന് മറികടക്കാനാവില്ലെന്നും ഗതാഗത മന്ത്രി എ

ശശീന്ദ്രൻ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട് പി

ടി സി മാനേജ്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും ആസൂത്രിത നീക്കത്തിന്റെ ഫലമാണെന്നു ട്രാൻസ്പ്രോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ

ഈ ഒഴിവുക്ളിൽ ്പി എസ് എസി റാങ്കുകാരെ നിയമിച്ചിരുന്നുവെങ്കിൽ നിലവിലെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഫ്യെഡ്റേഷൻ അധ്യക്ഷൻ തമ്പാനൂർ രവി പ്രസ്താവനയിൽ പറഞ്ഞു ട്ട വനിത മതിൽ വനിതാ മതിലിൽ ഗവൺമെന്റ് ജീവനക്കാർ പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടോയെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ഗവൺമെന്റ് സംവിധാനം ദുരുപയോഗപ്പെടുത്തിയാണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ഇതു സംബന്ധിച്ച സത്യവാങ്മൂലം വ്യാഴാഴ്ച സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു

ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി

ഇത്തരം ആവശ്യങ്ങൾക്കായി ജനങ്ങൾക്ക് മറ്റ് ഏത് തിരിച്ചറിയൽ രേഖകളും ഉപയോഗിക്കാവുന്നതാണ് ബൈപ്പാസ് നിർമ്മാണം കൊല്ലം ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യണമെന്ന് എൻ

പ്രേമചന്ദ്രൻ എം

ദേശീയപാതയുടെ പ്രധാന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടും കമ്മീഷൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഗവൺമെന്റിന് കനത്ത നഷ്ടമുണ്ടാക്കും കൊല്ലം നഗരത്തിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ ബൈപ്പാസ് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ശ്രീ

ഫെബ്രുവരിയിൽ കേരള ബാങ്ക് ് നിലവിൽവരുമെന്ന സഹകരണമന്ത്രിയുടെ പ്രഖ്യാപന്ം സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിവേർറുക്കുന്ന നീക്കമാണെന്ന് കെ

സി സി പ്രസിഡ്ന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

സഹകരണ ബാങ്കുകളെ തകർത്ത് വാണിജൃ ബാങ്കുകൾ രൂപീകരിക്കാൻ ആരാണ് ഈ ഗവൺമെന്റിന് അധികാരം നൽകിയതെന്ന് ശ്രീ മുല്ലപ്പള്ളി പ്രസ്താവനയിൽ ചോദിച്ചു ഓഖി നിയമസഭാ സമിതി ഓഖി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നതിലും തുടർ പ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ ഏജൻസിക്കും കാലാവസ്ഥാ വകുപ്പിനും വീഴ്ച പറ്റിയെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി

എസ് ആർ ഒ യുടെ റഡാർ സംവിധാനം ഓഫീസ് സമയത്ത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും സമിതിയുടെ പതിനൊന്നാമത് റിപ്പോർട്ടിൽ പറയുന്നു കേരളാ തീരത്ത് ഒരു അപകട സിഗ്നൽ സ്റ്റേഷൻ പോലും പ്രവർത്തിക്കുന്നില്ലെന്നും മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ സമിതി കണ്ടെത്തി

ബാങ്ക് അക്കൌണ്ടിൽ പെൻഷൻ ആവശ്യപ്പെട്ടവർക്ക് ഇന്നു മുതൽ തുക അക്കൌണ്ടിൽ ലഭിക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയുള്ള വിതരണം പൂർത്തിയായി വരുന്നതായി ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി

സുരക്ഷിത ഭക്ഷണം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി കെ

ട്രെയിൻ യാത്രക്കാർക്ക് ഗുണകരമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനും ശുചിത്വമുള്ള ഭക്ഷണ നിർമ്മാണ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപറേഷൻ ഐ

ഐ

സി

സി യിൽ ഇപ്പോൾ സി സി ടി വി സംവിധാനം ഉൾപ്പെടെയുള്ള കേന്ദ്രീകൃത നിരീക്ഷണ സൌകരൃങ്ങൾ നിലവിലുണ്ട്

ആദിവാസി ഗ്രാമങ്ങളിലൂം ജന്വാസമേഖലകളിലും കാട്ടുമൃഗങ്ങൾ രാത്രികാലങ്ങളിൽ ഇ്ങ്ങുന്നതുമൂലം ജനങ്ങൾ ഭീതിയിലാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

എ

ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ നാട്ടാനകളുടെയും ഡി

എ പ്രോഫൈലിംങ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി വ്യാജനോട്ട് വ്യാജനോട്ട് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ കാസർഗോഡ് ഉദുമയിലെ അബൂബക്കർ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കാസർഗോഡ് ഠൌൺ പൊലീസ് അറിയിച്ചു അതേസമയം നോട്ടിന്റെ പകർപ്പ് എടുത്തത് ബേക്കൽ പൊലിസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് പൊലീസ് കണ്ടെത്തി കടയിലെ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് സിദ്ദിഖ് നോട്ടിന്റെ പ്രിന്റ് എടുത്തത് കഴിഞ്ഞ ദിവസമാണ് വ്യാജനോട്ടുമായി മത്സ്യം വാങ്ങാനെത്തിയ സിദ്ദിഖിനെ നാട്ടുകാർ പിടികൂടി പൊലീസിൽ ഏൽപ്പിച്ചത് കേരള വ്യാപാരി വ്യാവസായി ഏകോപന സമിതി തൊഴിൽ ചെയ്യുന്നവനെ തടസ്സപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ആയുധമായി ഹർത്താലുകൾ മാറുന്നുവെന്നും ഹർത്താൽ ദിവസം കൂടകൾ തുറന്നു പ്രവർത്തിക്കുവാൻ ഗവൺമെന്റ് സംരംക്ഷണം ഉറപ്പാക്കണമെന്നും കേരള വ്യാപാരി വ്യാവസായി ഏകോപന സമിതി ആവശ്യപ്പെടും മനുഷ്യാവകാശ കമ്മീഷൻ സ്താബ് ഇളകി കിടക്കുന്നത് അറിയാതെ കനത്ത മഴയ്ക്കിടയിൽ ഓടയിൽ വീണ് മരിച്ച നിർദ്ധനനായ ഗൃഹനാഥന്റെ കുടുംബത്തിന് താത്ക്കാലികാശ്വാസമായി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരം പണ്ഡിറ്റ് കോളനി അശോക് കുമാറിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു